സംസ്ഥാനത്ത് ഇന്നലെ പുതിയ കൊറോണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി കെ കെ ശൈലജ

കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന ജ്യോതിരാദിതൃ സിന്ധൃ മധ്യപ്രദേശിൽനിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും

രോഗ വ്യാപനത്തിന്റെയും തീവ്ര തയുടെയും പശ്ചാത്തലത്തിലാണ് നടപടി രോഗപ്രതി രോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് ലോകാരോ ഗൃസംഘടന മേധാവി ടെഡ്രോസ് അദാനം ഗിബ്രിയേ സസ് ജനീവയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ്മരണസംഖ്യ ഉയ രാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി

നടപടി നാളെ പ്രാബലൃത്തിൽ വരും കേന്ദ്രമന്ത്രി ഡോ ഹർഷവർദ്ധന്റെ സാന്നിധൃത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിതല സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം പ്രവാസി ഇന്ത്യക്കാർക്ക് അനുവദിച്ചിരുന്ന വിസ ആവശ്യമില്ലാത്ത യാത്രാ സൌക ര്യത്തിനും വിലക്ക് ബാധകമായിരിക്കും

അത്യാവശ്യ മില്ലാത്ത വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി തലസംഘം നിർദ്ദേശം നൽകി

ഇറ്റലിയിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്കും ഗർഭി ണികളടക്കം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും പ്രാഥമിക കൊറോണ പരിശോധനയ്ക്കാവശ്യമായ സൌകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തും പരിശോധന യിൽ നെഗറ്റീവ് ആയവരെ യാത്ര ചെയ്യാൻ അനുവദി ക്കും

അതിനിടെ റോം മിലാൻ സിയോൾ വിമാന സർവ്വീ സുകൾ എയർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെ ച്ചു

സംസ്ഥാനത്ത് ഇന്നലെ പുതിയ കൊറോണ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു

എല്ലാവരെയും കൃത്യമായി പരിശോധിക്കുന്നു ണ്ടെന്നും കോവിഡ് അവലോകന യോഗത്തിനുശേഷം മന്ത്രി വ്യക്തമാക്കി വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്

നീന്തൽകു ളവും ജിംനാസ്റ്റിക് സെന്ററും ഇൻഡോർ സ്റ്റേഡിയവും തൽക്കാലത്തേക്ക് അടച്ചു കോഴിക്കോട് സൈബർ പാർക്ക് അടക്കം എല്ലാ ഐ ടി പാർക്കുകൾക്കും പ്രത്യേക പെരുമാറ്റച്ചട്ടം ഏർപ്പെടു ത്തി രണ്ടാഴ്ചക്കിടെ കോട്ടയം റ്റാന്നി താലൂക്കുകൾ സന്ദർശിച്ച ജീവനക്കാരെ കണ്ടെത്തി വൈദ്യപരിശോധന നട ത്താൻ നിർദ്ദേശമുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ കോവിഡ് പ്രതിരോധ ത്തിന് ആരോഗ്യവകുപ്പ് പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെ ടുത്തി പ്രാഥമിക പരിശോധനയിൽ സംശയം തോന്നുന്ന രോഗികളെ മഞ്ചേരി മെഡിക്കൽ കോളജിലേക്കും തിരൂർ ഗവ ആശുപത്രിയിലേക്കും മാറ്റും

വയ നാടൻ ചുരത്തിൽ നാളെ നടത്താ നിരുന്ന കുരിശ്ശിന്റെ വഴി ഒഴിവാക്കിയതായി ഫാദർ തോമസ് തുണ്ടത്തിൽ അറിയിച്ചു

കോട്ടയം മെഡിക്കൽ കോളജിൽ കൊറോണ സ്ഥിരീക രിച്ച് ചികിത്സയിൽ കഴിയുന്ന വയോധികയുടെ ആരോഗ്യ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇവരുടെ ഭർത്താ വിന്റെ നിലയും ഗുരുതരമാണ് ഇറ്റലിയിൽ നിന്നെത്തിയ കോവിഡ് ബാധിതൻ റാന്നി സ്യദേശിയുടെ മാതാപിതാക്കളാണ് ഇവർ

കൊറോണയുടെ സാഹചര്യത്തിൽ വയനാട് വള്ളി യൂർക്കാവിലെ ആറാട്ട് മഹോത്സ്വം ആൾക്കൂട്ടമൊഴി വാക്കി ചടങ്ങിലൊതുക്കാൻ തീരുമാനമായി ജില്ലാ കല ക്ടറും ക്ഷേത്ര ഭാരവാഹികളും ആഘോഷ കമ്മിറ്റിയും സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത് ജില്ല യിൽ നടക്കാനിരിക്കുന്ന മറ്റ് ഉത്സവങ്ങളും ചടങ്ങുകളി ലൊതുക്കണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു

വിനോദസഞ്ചാരികളുമായി ഇടപെടുന്നവർ സ്വീകരി ക്കേണ്ട മുൻകരുതൽ നടപടികൾ സംബന്ധിച്ച ബോധ വത്ക്കരണ ക്ലാസുകൾ ജില്ലയിൽ സംഘടിപ്പിച്ചു

ആചാരപരമായി അത്യാവശ്യമെ ങ്കിൽ മാത്രം ഒരാനയെ എഴുന്നള്ളിക്കാൻ അനുവദിക്കും കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്ര ലിൽ നോമ്പാചരണത്തിന് പള്ളിയിൽ താമസിക്കുന്ന തിനും അനുമതി നൽകില്ല

പള്ളിയിൽ നേർച്ചഭക്ഷണവും ഉണ്ടാ വില്ല

ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളും ബീച്ചുകളും മൃഗ ശാല മ്യൂസിയം എന്നിവയും അടച്ചിരിക്കുകയാണ് പക്ഷിപ്പനിയെത്തുടർന്ന് കോഴിക്കോട് കൊടിയത്തൂ രിലും വേങ്ങേരിയിലും കൊന്നൊടുക്കിയ കോഴികളുടെ ഉടമകൾക്ക് ഗവൺമെന്റ് നഷ്ടപരിഹാരം നൽകും

നശിപ്പിച്ച മുട്ടയ്ക്ക് അഞ്ച് രൂപവീതമായിരിക്കും നഷ്ടപരിഹാരം പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്നും തുടരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന ജ്യോതി രാദിത്യ സിന്ധ്യ മദ്ധ്യപ്രദേശിൽനിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും

ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സാന്നിധൃത്തിൽ പാർട്ടിയിൽ ചേർന്ന ഉടനെയാണ് സിന്ധ്യയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത്

ഇന്ത്യ ദക്ഷിണാഫ്രിക്ക് ഏകദിന ക്രിക്കറ്റ് പരമ്പ രയ്ക്ക് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ഇന്ന് തുടക്കമാകും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം പരി ക്കിൽ നിന്നും മോചിതരായി ഹാർദിക് പാണ്ഡ്യയും ശിഖർ ്ധവാനും ഭുവനേശ്വർ കുമാറും ടീമിൽ മടങ്ങി യെത്തി പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളുണ്ട് കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന പാല ക്കാട് മുതലമടയിൽ മാംഗോ പാർക്ക് ഉടൻ യാഥാർത്ഥ്യ മാകുമെന്ന് മന്ത്രി വി

തിരുവനന്തപുരത്ത് കർഷക പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി തീരുമാനം അറിയിച്ചത് ഏഴുകോടി രൂപയുടെ വികസന പദ്ധതി കൾ ഇതിന്റെ ഭാഗമായി നടപ്പാക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ കണ്ണൂർ ധർമ്മടത്തെ ലൈബ്രറികൾ ഹൈടെക് ആകാനൊരുങ്ങുന്നു

ഇതോടെ നെടുമ്പാശ്ശേരിയെ എംബാർക്കേഷൻ പദവിയിൽനിന്ന് നീക്കം ചെയ്തു

നാരീശക്തി പുരസ്കാരം ലഭിച്ച കൊല്ലം പ്രാക്കുളത്തെ ഭാഗീരഥിയമ്മയ്ക്ക് വാർദ്ധകൃകാല പെൻഷൻ രേഖകൾ കൈമാറി ഒരുവർഷം മുമ്പ് പെൻഷന് അപേക്ഷിച്ചെങ്കിലും ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ പെൻഷൻ ലഭിച്ചിരുന്നി ല്ല

ഇതിനാവശ്യമായ നാലര സെന്റ് ഭൂമി സ്വകാര്യ വ്യക്തികളിൽനിന്ന് ഒരു മാസത്തിനകം ഏറ്റെ ടുത്ത് റെയിൽവേയ്ക്ക് കൈമാറും

കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി സുപ്രീം കോടതിയുടെ പരിഗ്രണ നയിലാണെന്ന ഷുഹൈബിന്റെ മാതാപിതാക്കളുടെ വാദം കോടതി അംഗീകരിച്ചു വേതന വർദ്ധന ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് ജീവനക്കാർ നടത്തി വന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു ഗവൺമെന്റ് നിശ്ചയിച്ച മിനിമം വേതനം നടപ്പാക്കുമെന്ന ഉറപ്പിനെത്തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് കൊല്ലം തുറമുഖത്ത് എമിഗ്രേഷൻ ഓഫീസ് ആരം ഭിക്കാൻ ഉടൻ നടപടിയെടുക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം

വിദേശ കപ്പലുകൾ എമിഗ്രേഷൻ സൌകര്യം ഇല്ലാ ത്തതുകൊണ്ടാണ് കൊല്ലം തുറമുഖത്ത് എത്താത്ത തെന്ന് അദ്ദേഹം പറഞ്ഞു നാളെയും മറ്റന്നാളും കോഴിക്കോട്ട് നടത്താനിരുന്ന ചിത്രാഞ്ജലി നഴ്സറി സ്കൂൾ കലോത്സവം മാറ്റിവെ ച്ചു കൊറോണ സാഹചര്യം മുൻനിർത്തിയാണ് നടപടി